പ് നവകേരള നിർമാണത്തിനായി രണ്ടുവർഷത്തേയ്ക്ക് പ്രളയ സെസ് ചുമത്താൻ തീരുമാനം ആഡ്രംബര ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെയും നിർമാണ സാമഗ്രികളുടെയും വില വർദ്ധിക്കും

പൊതു വിദ്യാലയങ്ങൾക്ക് കിഫ്ബി ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കും

അഞ്ചു വർഷം കൊണ്ട് ആറായിരം കിലോമീറ്റർ റോഡ് നിർമിക്കുമെന്നും പ്രഖ്യാപനം

എഫ് ഗവ ൺമെന്റിന്റെ നാലാമത് ബജറ്റ് അവതരിപ്പിച്ചു നവകേരള നിർമ്മാണം കാർഷികം ആരോഗ്യം വ്യാവസായികം വിദ്യാഭ്യാസം സ്ത്രീശാക്തീക രണം എന്നീ മേഖലകൾക്ക് ബജറ്റിൽ ഊന്നൽ നൽകി പുനരധിവാസം വിജയകരമായി പൂർത്തിയാക്കിയതായും ഇനി പുനർ നിർമ്മാണത്തിന് പ്രാമുഖ്യം നൽകുമെന്നും മന്ത്രി ബജറ്റ് പ്രഖ്യാപനത്തിൽ അറിയിച്ചു

സാമ്പത്തിക പ്രതിസന്ധി മറികട ക്കാൻ ചെലവ് കുറയ്ക്കില്ല സർക്കാർ ചെലവ് കുറയ്ക്കുന്നത് സാമ്പത്തിക മുരടിപ്പിന് കാരണമാകും

പുതിയ വ്യവസായ പാർക്കുകളും കോർപ്പറേറ്റ് നിക്ഷേപങ്ങളും വരും

പുനർ നിർമ്മാണത്തിന് രണ്ടു വർഷത്തേക്ക് പ്രളയ സെസ് ചുമ ത്താനും തീരുമാനമായി പ്രളയ്ക് തകർത്ത ജീവനോപാധികൾ ഉറപ്പായും തിരിച്ചു പിടിക്കുമെന്നും മന്ത്രി

ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് അവതരണം തുടങ്ങിയത് അയ്യങ്കാളി അടക്കമുള്ള നവോത്ഥാന നായകരുടെ പേരുകൾ പരാമർശിച്ചുകൊണ്ട് കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റവും സൂചിപ്പിച്ചു

സ്ത്രീ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുന്ന പ്രമുഖവനിതക്ക് ദാക്ഷായണി വേലായുധൻ പുരസ്കാരം നൽകുമെന്നും ധനമന്ത്രി പറഞ്ഞു കുമാരനാ ശാന്റെ കവിത ചൊല്ലിയാണ് ബജറ്റ് പ്രസംഗം മന്ത്രി അവസാനിപ്പിച്ചത്

സിനിമാ ടിക്കറ്റ് ആഡംബര ഉൽപന്നങ്ങൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ബിയർ വൈൻ സ്വർണം വെള്ളി സിമന്റ് ഗ്രാനൈറ്റ് സെറാമിക് ടൈൽസ് പെയിന്റ് പ്ലൈവുഡ് എന്നിവയ്ക്ക് വില ഉയരും ശീതളപാനീയങ്ങൾ ചോക്ലേറ്റ് കാർ ഇരുചക്രവാഹനങ്ങൾ ടൂത്ത്പേസ്റ്റ് സോപ്പ് മൊബൈൽ ഫോൺ ഫ്രിഡ്ജ് എ സി കമ്പ്യൂട്ടർ തുടങ്ങി ഭൂരിഭാഗം വസ്തുക്കൾക്കും വില വർദ്ധിക്കും ആഡംബര വീടുകൾക്കും നികുതി വർദ്ധിക്കും

കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാൻ പൃദ്ധതി ആവിഷ്കരിച്ചതായി മന്ത്രി ഒരു റിപ്പോർട്ട്

കാർഷികോൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തും

പാലക്കാട് തൃശ്ശൂർ ആലപ്പുഴ എന്നിവിടങ്ങളിൽ അത്യാധുനിക സൌകര്യത്തോടെയുള്ള റൈസ് ് പാർക്കുകൾ സ്ഥാപിക്കും

ബജറ്റ് ആരോഗ്യം കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതി നടപ്പാക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപനം നാലു ഭാഗങ്ങളായി തിരിച്ചുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്

മറ്റുള്ളവർക്ക് നിശ്ചിത തുക പ്രീമിയം അടച്ച് പദ്ധതിയിൽ ചേരാം

അജീവിതശൈലി രോഗങ്ങൾ കാൻസർ എന്നിവയുടെ ചികിത്സയ്ക്കായി അഞ്ചു ലക്ഷം രൂപവരെ ഗവൺമെന്റ് നേരിട്ട് ആശുപത്രികൾക്ക് നൽകും

താലൂക്ക് ആശുപത്രികളിൽ ട്രോമാ കെയർ സംവിധാനം ഏർപ്പെടുത്തും

എല്ലാ ്മെഡിക്കൽ കോളേജുക ളിലും ഓങ്കോളജിസ്റ്റുകളെ നിയമിക്കുമെന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വിശദമാക്കി കാസർഗോഡ് ജില്ലയിലെ പുളിക്കുന്നിൽ ഹെലികോപ്റ്റർ ഇറങ്ങാവുന്ന സൌകര്യത്തോടുകൂടിയ ആശുപത്രിക്ക് രുപ അനുവദിച്ചിട്ടുണ്ട്

സി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പൊതുവിദ്യാലയങ്ങളിൽ രണ്ടരലക്ഷം കുട്ടികൾ പുതുതായെത്തി

മാനദണ്ഡപ്രകാരമുള്ള അധ്യാപക തസ്തികകൾ സൃഷ്ടിച്ചതായി ധനമന്ത്രി സ്കൂൾ കലോത്സവത്തിനായി ആറര കോടി രൂപ അനുവദിച്ചു

തോമസ് ഐസക് ബജറ്റിൽ പ്രഖ്യാപിച്ചത് ഒരു റിപ്പോർട്ട്

തിരുവനന്തപുരം കെഎസ്ആർട്ടീസി കോർപ്പറേഷനിലെ മുഴുവൻ ബസുകളും ഇലക്ട്രിക് ബസുകളാക്കും

കൊല്ലത്ത് ബോട്ട് ബിൽഡിങ് യാർഡ് സ്ഥാപിക്കും പൊഴിയൂരിൽ മത്സ്യബന്ധന തുറമുഖം

ഒരു റിപ്പോർട്ട് കൊച്ചി കോയമ്പത്തൂർ വ്യവസായ ഇടനാഴി സ്ഥാപിക്കാനും കൊച്ചിയിൽ അമരാവതി മാതൃകയിൽ ജിഡിസിഎ ടൌൺഷിപ്പുകൾ നിർമ്മിക്കാനും തീരു മാനമുണ്ട് കൊല്ലത്തെ പാരിപ്പള്ളി തിരുവനന്തപുരത്തെ വെങ്ങോട് തുടങ്ങിയ സ്ഥല ങ്ങളിൽ വ്യവസായ വൈജ്ഞാനിക ി വളർച്ചാ ഇടനാഴികൾ ആരംഭിക്കും

ഇതോടനൂബ്ന്ധിച്ച് ഐടി പാർക്കുകളിൽ ജോലി ചെയ്യു ന്നവരുടെ എണ്ണം ഒരു ലക്ഷത്തിൽ നിന്ന് രണ്ടു ലക്ഷമായി ഉയർത്തും

എസ് ആർ ടി

ശബരിമല ക്ഷേത്രത്തിൽ തിരുപ്പതി മാതൃകയിൽ സംവിധാനമൊരുക്കുമെന്നും മന്ത്രി

ഡി എസുകളിൽ ഇവന്റ് മാനേജ്മെന്റ് ടീമുകൾ രൂപീകരിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു

തൊഴിലുറപ്പു പദ്ധതി വിപുലമാക്കും

വീടുകളിലൂം സ്ഥാപനങ്ങളിലും സൌരോർജ പാനലുകൾ സ്ഥാപിക്കുന്നതിന് കിഫ്ബിയിൽ നിന്നും പണം നൽകും

പുതിയ ഇന്ത്യയ്ക്കായും ് സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും തന്റെ ഗവൺമെന്റ് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണെന്നും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ബജറ്റ് സമ്മേളത്തിന് മുന്നോടിയായി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിനായി ഗവൺമെന്റ് നിരവധി പരിപാടികൾ കഴിഞ്ഞ നാലര വർഷത്തിനുള്ളിൽ ആവിഷ്ക്കരിച്ച് നടപ്പാക്കിയതായി രാഷ്ട്രപതി പറഞ്ഞു

വി തോമസ് എം

യുടെ വിദ്യാധനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകുന്ന ഇ ബുക്ക് റീഡറുകളുടെ വിതരണോദ്ഘാട ശനിയാഴ്ച നവും നിർവ്വഹിക്കും

താലൂക്ക് വില്ലേജ് ഓഫീസുകൾ രാഷ്ട്രീയ പാർട്ടി ഓഫീസുകൾ എന്നിവിടങ്ങളിലും ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ കൈവശവും പട്ടിക പരിശോധനക്ക് ലഭിക്കും

രാജ്യത്തെ വിവിധ ആരാധനാലയങ്ങളിൽ നിന്ന് ഭക്ഷ്യവീഷ ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് തീരുമാന്റം ആരാധനാലയങ്ങളിൽ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർ മെഡിിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ഏകദിന ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ഏഴാമത്തെ കുറഞ്ഞ സ്കോറാണ് ഇത് വിരാട് കോഹ്ലി മഹേന്ദ്ര സിംഗ് ധോണി എന്നിവർ ഇല്ലാതെ ഇറങ്ങിയ ഇന്ത്യൻ ബാറ്റിംഗ് നിര കിവീസ് ബൌളർമാർക്ക് മുന്നിൽ തകർന്നടിയുകയായിരുന്നു പരമ്പരയിലെ അവസാന മത്സരം ഞായറാഴ്ച വെല്ലിംഗ്ടണ്ണിൽ നടക്കും